തിരഞ്ഞെടുപ്പ് പ്രചാരണസമയം ഇന്ന് രാത്രി പത്തു മണി വരെയായി കുറച്ചു

ഇറാഖിലെ അമേരിക്കൻ എംബസിയിൽ അവശ്യസേവനങ്ങൾക്കായുള്ളവർ ഒഴികെ മറ്റെല്ലാ ജീവനക്കാരോടും തിരികെ വരാൻ അമേരിക്ക നിർദ്ദേശിച്ചു

ചൊവ്വാഴ്ച കൊൽക്കത്തയിൽ നടന്ന അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണസമയം വെട്ടിക്കുറയ്ക്കുന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അറിയിച്ചിരുന്നു

ഈ മണ്ഡലങ്ങളിലെ പ്രചാരണസമയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കുറച്ചത് ഇന്ന് രാത്രി പത്തുമണിയ്ക്ക് ശേഷം പൊതുയോഗങ്ങളോ റാലികളോ തിരഞ്ഞെടുപ്പ് പ്രചാരണപ്രവർത്തനങ്ങളോ പാടില്ലെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് സ്വീകരിച്ച ഇത്തരത്തിലൊരു നടപടി ഇത് ആദ്യമാണെന്ന് ഡ്ലെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ ന്യൂഡൽഹിയിൽ പ്പറഞ്ഞു സാമൂഹിക പരിഷ്കർത്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസ്റ്റിഗ്ല്റിന്റെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചതിൽ കമ്മീഷൻ അതീവ ദുഖം ഫ്രികട്ടിപ്പിച്ചു സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി അത്രി ഭട്ടാചാര്യം സി ഐ

ഡി ജി രാജീവ് കുമാർ എന്നിവരെ തത്സ്ഥാനത്ത് ്നിന്ന് നീക്കം ചെയ്യാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു സംസ്ഥാിന്റര്ത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അനാവശ്യ ഇടപെടലുകൾ ആടത്തിയതിനാണ് ശ്രീ ഭട്ടാചാര്യയെ നീക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷ്ണൂർ സുധീപ് ജെയ്ൻ പറഞ്ഞു

എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഭരണഘടന വിരുദ്ധവും അധാർമ്മികവുമാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉത്തർപ്രദേശിലെ മാഉ ചന്ദൌലി മിർസാപുർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

ജെ

അധ്യക്ഷൻ അമിത്ഷാ മഹരാജ്ഗഞ്ജിൽ നടക്കുന്ന റാലിയിലും ഗോരഖ്പൂരിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ഖുഷിനഗറിലും ബീഹാറിലെ പറ്റ്നയിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും

വിവിധയിടങ്ങളിലായി വൃത്യസ്ത റാലികളിൽ പങ്കെടുക്കുന്നതിന്റെ ആവേശത്തിലാണ് നേതാക്കളും അണികളും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ പഞ്ചാബിൽ സമ്മതിദായകരെ അഭിസംബോധന ചെയ്തു ആയിരംകോടി രൂപയുടെ കടബാധ്യതകൾ പ്രമുഖ വ്യാപാരികൾക്ക് എഴുതിത്തള്ളിയപ്പോൾ പാവപ്പെട്ട കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പ്രധാനമന്ത്രി മുൻകൈയ്യെടുത്തില്ലെന്ന് ശ്രീ

നോട്ടു നിരോധനം വ്യവസായമേഖലയെ തകർത്തുവെന്നും കാർഷിക മേഖല പ്രതിസന്ധിയിലായെന്നും തൊഴിലില്ലായ്മ രൂക്ഷമ്പാട്ടെന്നും ശ്രീ

ജെ പിയില്ലെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി മധ്യപ്പ്പ്ദേശിലെ ധർ അലിരജ്പൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു രാജ്യസുരക്ഷയാണ് ബി ജെ

ജെ

ഇന്നലെ പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ പിയ്ക്കെതിരെ ശ്രീമതി മമതാ ബാനർജി നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് അമിത്ഷായുടെ റോഡ്ഷോയിൽ അക്രമങ്ങൾ അരങ്ങേറിയത്

ജെ പിയ്ക്ക് ലഭിക്കുന്ന പൊതുജന പിന്തുണയെ ശ്രീമതി മമതാ ബാനർജി ഭയപ്പെടുന്നതിന്റെ പ്രതിഫലനമാണ് ഇത്തരം ആക്രമണങ്ങളെന്നും ശ്രീ

രാജ്യത്ത് നുഴഞ്ഞു കയറിയവരെ ബി ജെ പി ഭരണകൂടം തിരിച്ചറിയുമെന്നും രാജ്യത്തെത്തിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അഭയാർത്ഥികൾക്കെല്ലാം പൌരത്വം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ചൊവ്വാഴ്ചത്തെ അക്രമസംഭവങ്ങൾ ബി ജെ പി മുൻകൂട്ടി ആസൂത്രണ ചെയ്ത് നടപ്പാക്കിയതാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും ത്രിണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ആരോപിച്ചു സാമൂഹിക പരിഷ്കർത്താവായ ഈശ്വർചന്ദ്ര വിദ്യാ സാഗറുടെ പ്രതിമ നശിപ്പിച്ചതിനു പിന്നിൽ ബി ജെ പി ആണെന്നും അവർ കുറ്റപ്പെടുത്തി

സൂ റോഡ് മേഖലയിൽ മോട്ടോർ സൈക്കിളിലെത്തിയവരാണ് ഗ്രനേഡ് ആക്രമണം നടത്തിയതെന്ന് പൊലീസ് അറിയിച്ചു

മന്ത്രിമാർ പൊലീസ് മേധാവികൾ ഗുവാഹത്തി പൊലീസ് കമ്മീഷണർ എന്നിവർ ആശുപത്രിയിൽ എത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി ഡി ജി

കുലധർ സയ്ക്കിയ അറിയിച്ചു

ക്മ്യ്ക്ലയിലെ ഭീകര സാന്നിദ്ധ്യത്തെക്കുറിച്ചുള്ള രഹസ്യവിശ്ശിരത്തെ തുടർന്ന് ദാലിപ്പോര ഗ്രാമത്തിൽ സേന നടത്തിയ തിരച്ചിലിനിടെയാണ് വ്വെടിവയ്പ്പുണ്ടായത് വെടിവയ്പ്പിനിടെ രണ്ട് സുരക്ഷാ സേനാംഗങ്ങൾക്ക് പ്രിക്കേറ്റിട്ടുണ്ട് പോരാട്ടം ഇപ്പോഴും തുടരുന്നതായാണ് ഏറ്റവും ഹൃത്രിയു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്

ഇറാനുമായുള്ള അമേരിക്കയുടെ ഭിന്നത രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധൃത കണക്കിലെടുത്താണ് നിർദ്ദേശം ഇറാഖിലേക്ക് യാത്രചെയ്യുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി സീനാ ആന്റണി

തീവ്രവാദ ഹിംസാത്മക പ്രവർത്തനങ്ങളിൽ ഇന്റർനെറ്റ് ദുരുപയോഗിക്കപ്പെടാവുന്ന സാധ്യതകൾ നിലവിലുണ്ടെന്നും തീവ്രവാദികളിൽ നിന്നും ഇന്റർനെറ്റിനെ സുരക്ഷിതമാക്കാൻ ആഗോളതലത്തിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു തീവ്രവാദപരമായ കാര്യങ്ങൾ ഓൺലൈനിലൂടെ വ്യാപിക്കുന്നത് ഇരകളുടെ മനുഷ്യാവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഇത് രാജ്യങ്ങളുടെയും എല്ലാതരം ജനവിഭാഗങ്ങളുടെയും സുരക്ഷയേയും ബാധിക്കുന്നതാണ്

ഇതിനെതിരെ രാജ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ പൊതുസമൂഹം എന്നിവർക്കിടയിൽ സഹകരണം വളർത്തേണ്ടതിന്റെ ആവശ്യകതയും ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ക്ധാരണയിൽ നിന്ന് അഞ്ച് ദിവസം വൈകിയാണ് ഇത്തവണ മുൺസൂൺ കേരളത്തിലെത്തുക

പിന്നീട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാവധാനം വടക്കേ ഇന്ത്യയിലേയ്ക്ക് നീങ്ങും

യാത്രയ്ക്ക് വേണ്ടിയുള്ള തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഇന്നലെ വിദേശ കാര്യ സെക്രട്ടറി വിജയ്ഗോഖലെ നറുക്കെടുപ്പ് നടത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നവരെ എസ് എം എസ് മുഖേന വിവരം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

വ്യോമനിരോധനം സംബന്ധിച്ച് കാര്യം പുനപരിശോധിക്കാൻ പ്രതിരോധ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം

ഇനി മുതൽ എല്ലാ ഭാഷകളിലുമൂള്ള് ഹ്ലിക്കിപീഡിയ എഡിഷനുകൾക്ക് ചൈനയിൽ വിലക്കുണ്ടാവ്ട്രൂം ഓപ്പൺ ഒബ്സർവേട്ടറി ഓഫ് നെറ്റ്വർക്ക് ഇന്റർഫെറൻസ് നൽകിയ റിക്ക്പോർട്ടിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മുതൽ വിക്കിപീഡിയ പേജുകൾക്ക് ചൈന നിരോധനം ഏർപ്പെടുത്തി തുടങ്ങിയത് നേരത്തെ ചൈനീസ് ഭാഷയ്ീലൊഴികെയുള്ള വിക്കിപീഡിയ എഡിഷനുകൾ രാജ്യത്ത് ലഭ്യമായിരുന്നു